പൊങ്കാലയ്ക്കായി തലസ്ഥാനം ഒരുങ്ങി

പൊങ്കാലയ്ക്കുള്ള പ്രത്യേക ആറിയിപ്പായി ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളവും വായ്ക്കുരവയും ഉയരും തുടർന്ന് നഗരത്തിലെ ലക്ഷക്കണക്കിന് അടുപ്പുക്ടളിൽ പൊങ്കാലയ്ക്ക് തീ പകരും പൊങ്കാല അർപ്പിക്കാനൂള്ള ഒരുക്കുകളുമായി ഭക്തർ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്

പൂർണ്ണമായും ഹരിത നിയമാവലി പാലിച്ചുകൊണ്ടാണ് ഇക്കുറിയും പൊങ്കാല നടക്കുന്നത്

സുരക്ഷയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി സിറ്റി പോലീസ് കമ്മീഷണർ പി പ്രകാശ്